യുവജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു സന്ദർശനം അടിസ്ഥാന വികസനം ആരോഗൃം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖ ലകളിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ അറി വുകൾ കൈമാറാൻ സന്ദർശനം വഴിയൊരുക്കിയതായും മുഖ്യ മന്ത്രി വാർത്താ സ മ്മേ ള ന ത്തിൽ പറഞ്ഞു വിദേശയാത്രയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയുന്നില്ലെന്നും മുഖ്യമന്ത്രി അറിയി ച്ചു

ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് ബാറ്ററി സാങ്കേ തിക വിദ്യ കൈമാറാൻ തോഷിബ കമ്പനി തയ്യാറായി സംസ്ഥാനത്തെ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപന ത്തോട് ചേർന്ന് എൽ ടി ഒ ബാറ്ററി നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ നിർമ്മാ ണത്തിന് ടൊയോട്ട കമ്പനിയുമായും ധാരണ രൂപപ്പെ ടുത്തിയതായി മുഖ്യമന്ത്രി അറിയിച്ചു ജപ്പാനിലെ വ്യവസായികൾക്ക് കേരളത്തിലെ തൊഴിൽ സാഹചര്യങ്ങളിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൊറിയയിലെ പ്രമുഖ കമ്പനിക ളും കേരളത്തിലെ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി

ഭരണകാലത്തു നടത്തിയ വിദേശയാത്രകളെക്കു റിച്ച് ജനങ്ങളോട് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാ കണമെന്നും യാത്ര കൊണ്ട് ജനങ്ങൾക്കുള്ള ഗുണമെ ന്താണെന്ന് വ്യക്തമാക്കണമെന്നും മുല്ലപ്പള്ളി ആവശ്യ പ്പെട്ടു

എൻജിനീയറിംഗ് കോളജുകളും പോളിടെക്നിക്കു കളും ഉൾപ്പെടെ സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാ ഭ്യാസ സ്ഥാപനങ്ങളെ വിദ്യാർത്ഥി സുരക്ഷിത സ്ഥാപ നങ്ങളാക്കി മാറ്റുമെന്ന് മന്ത്രി ഡോ കെ ടി ജലീൽ പറ ഞ്ഞു ഇതര സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനത്തെ സാങ്കോതിക വിദ്യാ ഭ്യാൻ സ്ഥാപനങ്ങളിൽ

വെള്ളി മാടു കുന്ന് ജെ ഡി ടി ഇസ്ലാമിൽ ഇന്ത്യൻ സൊസൈറ്റി ഫോർ ടെക്നിക്കൽ ഏജ്യൂക്കേഷൻ കേരള ചാപ്റ്ററിന്റെ മുപ്പതാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിമർശനങ്ങളെ ഭയന്ന് മാറ്റങ്ങളെ തടുത്തു നിർത്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു

സി ഷെറീഫ് സംവിധാനം ചെയ്ത മലയാള ചിത്രം കാന്തൻ ദ ലവർ ഓഫ് കളറും ഇതിൽപെടും നടി ശാരദയോടുള്ള ആദരാർത്ഥമുള്ള ശാരദ റെട്രോസ്പെക്ടീവ് വിഭാഗത്തിനും ഇന്ന് തുടക്കമാകും സംസ്ഥാനത്ത് ഹെൽമറ്റ് പരിശോധന കർശനമാക്കു മെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വൃാജ ഹെൽമറ്റ് വിൽപ്പനക്കാർക്കെതിരെയും നടപടി ശക്തമാക്കും കോഴി ക്കോട്ട് മോട്ടോർവാഹന വകുപ്പിന്റെ ഹെൽമറ്റ് ബോധ വത്ക്കരണ മോട്ടോർ സൈക്കിൾ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സൈനിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനൊപ്പം ധീര സൈനികരോടും ആശ്രിതരോടും കടപ്പാടും പ്രകടിപ്പിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കോഴിക്കോട് സായുധസേനാ പതാക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സൈനികരുടെ വിധവകൾക്കും മക്കൾക്കും നൽകുന്നു സാമ്പത്തിക സഹായവിതരണം എഡിഎം രോഷ്നി നാരായണൻ നിർവഹിച്ചു ലലലലല ഉന്നാവോ ബലാത്സംഗ കേസ് അതിവേഗ കോടതി യിലേക്ക് മാറ്റി കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ നൽകു മെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ പ്പറഞ്ഞു എല്ലാ പ്രതികളും പിടിയിലായി ട്ടുണ്ടെന്നും അവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്നും ആദിത്യ നാഥ് വൃക്തമാക്കി പെൺകുട്ടിയുടെ മരണത്തിൽ മുഖൃ മന്ത്രി കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ചു

സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണി ച്ചാണ് നടപടി കേസിൽ ഇന്ന് കോടതി വിശദമായ വാദം കേൾക്കും ലലലലലല തെലങ്കാന സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ന് തെളിവെടുപ്പ് നടത്തും പ്രതികൾ പൊലീസിന്റെ വെടിയേറ്റ് മരിച്ച സ്ഥലത്താണ് തെളിവെ ടുപ്പ്

വൃത്യസ്ത ബാങ്കുകളിലെ അക്കൌണ്ടുകളിലേക്ക് പണം അയ്ക്കുന്ന സംവിധാനമായ എൻ

അടുത്ത ഏപ്രിൽ മുതൽ നിലവിൽ വരുന്ന പുതിയ ജിഎസ്ടി റിട്ടേൺസ് നടപടി ക്രമത്തെക്കുറിച്ചുള്ള പ്രതികരണം അറിയുന്നതിനാണ് ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കേന്ദ്ര പരോക്ഷനികുതി കസ്റ്റംസ് ബോർഡ് ചെയർമാൻ പ്രണബ് കുമാർദാസ് ന്യൂഡൽഹിയിൽ പറഞ്ഞു

ലലലലല നാലാമത് ദേശീയ വനിത ബോക് സിംഗ് ചാമ്പ്യൻഷിപ്പിലെ സെമി ഫൈനൽ ഉച്ചയ്ക്ക് ശേഷം

കേരള താരങ്ങളായ കെ

ഇന്ദ്രജ യു

അഞ്ജു സാബു ആൾ ഇന്തൃ പോലീസിലെ കെ ബീനാദേവിയുമായും പി

നാളെയാണ് ഫൈനൽ

എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എ

കെ യെ നേരിടും ഗോഹട്ടി യിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം

ടീമംഗങ്ങൾ ഇന്ന് വൈകീട്ട് എത്തും ആദ്യമ ത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം

പുതിയാപ്പ ബീച്ചിലാണ് മത്സരം

മന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്യും

തിങ്കളാഴ്ചയാണ് മാവോയിസ്റ്റുകൾ കോളയാട് ചേക്കേരി കോളനിയിൽ എത്തിയത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരുമാണ് സംഘത്തിലു ണ്ടായിരുന്നത്

ഇവർ സായുധ വിപ്ലവത്തിന് ചെയ് തുവെന്നും ആഹഹാനം ജനങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നും ആരോപിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ശബരിമല യുവതീപ്രവേശം അടഞ്ഞ അധ്യായമാ ണെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാ പ്പള്ളി നടേശൻ പറഞ്ഞു ശബരിമലയിൽ സ്ത്രീകൾ സംഘടിതമായി പോകുന്നത് ശരിയല്ല ശബരിമലയെ സംഘർഷഭൂമിയാക്കാൻ ശ്രമിക്കരുതെന്നും വെള്ളാപ്പള്ളി സ്വകാര്യ വാർത്താചാനലിനോട് പറഞ്ഞു കോഴിക്കോട് കൂടത്തായ് പൊന്നാമറ്റം ഭൂമിയുമായി ബന്ധപ്പെട്ട വ്യാജ ഒസ്യത്ത് കേസിൽ റിമാൻഡിലുള്ള എം കെട്ടാങ്ങൽ സി പി മുൻ ലോക്കൽ സെക്രട്ടറി മനോജിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും ഇയാളെ താമരശ്ശേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും പു തു വർഷാ ഘോഷത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന കൊച്ചിൻ കാർണിവൽ പരിപാടികൾക്ക് നാളെ തുടക്കമാകും സെന്റ് ഫ്രാൻസിസ് പള്ളിയങ്കണത്തിൽ യുദ്ധസ്മാരകത്തിലെ ഐക്യദാർഢ്യ പ്രതിജ്ഞാ ചടങ്ങിനും റീത്ത് സമർപ്പണ ത്തിനും ശേഷമായിരിക്കും കാർണിവൽ

ഏതെങ്കിലും വ്യക്തികളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ സംഘടനകളെയോ ഇതിനായി ചുമതലപ്പെടു ത്തിയിട്ടില്ലെന്നും ജില്ലാ കലക്ടർ വാർത്താക്കുറിപ്പിൽ വൃക്തമാക്കി

മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധി റീ സർവേയുമായി ബന്ധപ്പെട്ട അപേക്ഷ റേഷൻ കാർഡ് സംബന്ധിച്ച പരാതികൾ എന്നിവ അദാലത്തിൽപ്പെടില്ല

സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടേയും ക്ഷേമനിധി ബോർഡിന്റേയും ആഭിമുഖ്യത്തിൽ കലാകായിക മത്സരങ്ങൾ നാളെ കോഴിക്കോട് ഗവ മോഡൽ ഹയർസെക്കൻഡറി സ്കൂളിൽ നടക്കും വൈകീട്ട് നാല് മണിക്ക് സമാപന സമ്മേളനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും

യോഗയിലും എയറോബിക് സിലുമാണ് പ്രിശീലനം നൽകുക